യുദ്ധവിമാനങ്ങളും ഉപകരണങ്ങളും വാങ്ങാൻ ഡിഫെൻസ് അകിസിഷൻ കൌൺസിലിന്റെ അംഗീകാരം

വന്ദേ ഭാരത് ദൌത്യത്തിന്റെ നാലും പ്ലെട്ടം ഇന്ന് ആരംഭിക്കും

സ്ഥിരീകരിച്ചു

തദ്ദേശീയമായ രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമാണ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങ്ങിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രാധാന്യം നൽകിയത്

ഇന്ത്യൻ പ്രതിരോധ വൃവസായം നിരവധി എം

ആർ ഡി

പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു കർഷകരും തൊഴിലാളികളുമാണ് മരിച്ചത് മരിച്ചവരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു

തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അഞ്ചും കണ്ണൂരിൽ നാലും വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്

കോവിഡ് പ്രതിരോധം നിയന്ത്രണം ്എന്നീ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുള്ള സർക്കാരിന്റെ പ്രവർത്തനം ആശാവഹമായ ഫലം നൽകുന്നതായി ആരോഗ്യമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഇത്തരം വ്യാജ സന്ദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

കോഴിക്കോട്ട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ട് ആയിരിക്കുമെന്ന് കേന്ദ്ര കാല്പ്പ്പെട്ട് വകുപ്പ് അറിയിച്ചു

കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഘട്ടർ എന്നിവർ പങ്കെടുത്തു പരിശോധനയുടെ എണ്ണം കൂട്ടുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ശ്രീ അമിത്ഷാ വിലയിരുത്തി ഉത്തർപ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് പരിശോധനാ കിറ്റുകൾ നൽകാൻ കേന്ദ്രസർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യസേതു ഇതിഹാസ് തുടങ്ങിയ ആപ്പുകളുടെ ഉപയോഗം വിപുലീകരിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

ഇ ഇ നീറ്റ് പരീക്ഷകൾ നടത്തുന്നത് സംബന്ധിച്ച് സാഹചര്യം അവലോകനം ചെയ്യാനും ശുപ്പൂർശകൾ സമർപ്പിക്കാനും കേന്ദ്ര സർക്കാർ വിദഗ്ധസമിതി രൂപീകൃതിച്ചു

കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ കോവിഡ് മുക്തി നേടിയ ദിനം കൂടിയായിരുന്നു ഇന്നലെ

കണ്ണൂർ ജില്ലയിലെ പടിയൂർ കീഴല്ലൂർ പാലക്കാട് ജില്ലയിലെ ആനക്കര എന്നിവയെ കണ്ടൈയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി

രോഗം സ്ഥിരീകരിച്ച് പത്താം ദിവസമാണ് ഇരുവരു്ടെയും പരിശോധനാ ഫലം നെഗറ്റീവായത് സെർബിയ്ഷ്ട് ത്ലസ്ഥാനമായ ബൽഗ്രേഡിലെ വീട്ടിൽ ഐസൊലേഷനിലായിരുന്നു് ജോക്കോവിച്ചും ഭാര്യയും

കോവിഡ് പ്രതിരോധത്തിന് ഇരുരാജ്യങ്ങളും കൈക്കൊള്ളുന്ന ഊർജ്ജിതമായ പ്രവർത്തനങ്ങൾ ഇരുനേതാക്കന്മാരും ചർച്ച ചെയ്തു കോവിഡിന് ശേഷം ലോകം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ ഒന്നിച്ച് അഭിസംബോധന ചെയ്യാൻ ഇന്ത്യയും റഷ്യയും തമ്മിൽ പരസ്പര ധാരണയിലെത്തി ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചു

രവിശങ്കർ പ്രസാദ് പറഞ്ഞു

പശ്ചിമബംഗാളിലെ ബി ജെ പി പ്രവർത്തകരെ വെർചൽ റാലിയിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം